ആഗോള ഭീകരതയ്ക്കും അതിനെ പിന്തുണക്കുന്നവർക്കും എതിരെ ശക്തമായ നടപടികൾ എടുക്കണമെന്ന് സാർക്ക് രാഷ്ട്രങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ജാർഖണ്ഡിൽ മൂന്നും നാലും ഘട്ട വോട്ടെടുപ്പിന് പ്രചാരണം ഊൌർജ്ജിതം

ഉന്നാവോയിൽ പെൺകുട്ടിയെ തീവച്ചു കൊന്ന സംഭവവുമായി കൃത്യവിലോപത്തിന് ഏഴ് പോലീസ് ഓഫീസർമാരെ യു

സാർക്കിന്റെ രൂപീകരണ ദിനത്തോടനുബന്ധിച്ച് സെക്രട്ടേറിയറ്റിന് അയച്ച കത്തിലാണ് പ്രധാനമന്ത്രിയുടെ ആഹ്വാനം ഇത്തരം നടപടിയിലൂടെ ശക്തമായ സാർക്ക് എന്ന ആശയം ഉരുത്തിരുയുമെന്ന് ശ്രീ മോദി കത്തിൽ ചൂണ്ടിക്കാട്ടി പാകിസ്ഥാന്റെ പേരെടുത്ത് പറയാതെ സാർക്ക് രാഷ്ട്രങ്ങൾക്കിടയിൽ സഹകരണം വർദ്ധിപ്പിക്കാനുള്ള ഇന്ത്യൻ ശ്രമങ്ങൾക്ക് കടുത്ത വെല്ലുവിളിയാണ് ഭീകര പ്രവർത്തനം വഴി സൃഷ്ടിക്കപ്പെടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു വിവിധ രംഗങ്ങളിൽ സാർക്ക് വലിയ നേട്ടം കൈവരിച്ചിട്ടുണ്ട് എന്നാൽ ഇനിയും ഏറെ ദൂരം പിന്നിടാൻ ഉണ്ടെന്നും പ്രധാനമന്ത്രി പ്രത്യേകം ഓർമ്മിപ്പിച്ചു

തുടർന്ന് സ്ട്മ്മേള്നം റദ്ദാക്കുകയായിരുന്നു

കേന്ദ്രമന്ത്രി അമിത് ഷായാണ് ബിൽ അവതരിപ്പിക്കുന്നത്

അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് കുടിയേറിയ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ ജനങ്ങൾക്ക് പൌരത്വം അനുവദിക്കാൻ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു ഹിന്ദു സിഖ് ബുദ്ധിസ്റ്റ് ജയിൻ പാർസി ക്രിസ്റ്റ്യൻ എന്നീ മതങ്ങളിലെ പൌരന്മാർക്കാണ് ആനുകൂല്യം ലഭിക്കുക

സി യും ഇടതു കക്ഷികളും ബില്ലിലെ വ്യവസ്ഥകളോട് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് ബില്ലിനെ സഭയിൽ എതിർക്കുമെന്ന് കോൺഗ്രസ്സ് നേതാവ് അധിർ രഞ്ജൻ ചൌധരി അറിയിച്ചു അതിനിടെ പാർട്ടി എം പി മാർ ബുധനാഴ്ച വരെ ലോക്സഭയിൽ ഹാജരായിരിക്കണമെന്ന് ബിജെപി പാർട്ടി എം

ഇന്ന് മുതൽ നാല് ദിവസം നിർബന്ധമായും സഭയിലുണ്ടാകണമെന്ന് തൃണമൂൽ കോൺഗ്രസ്സും പാർട്ടി എം പി മാർക്ക് വിപ്പ് നൽകിയിട്ടുണ്ട് കടൽക്കൊള്ള തടയുന്നതിനും കുറ്റവാളികൾക്ക് ശിക്ഷ വൃവസ്ഥ ചെയ്യുന്നതിനുമുള്ള ബിൽ വിദേശകാര്യമന്ത്രി ജയ്ശങ്കർ സഭയിൽ അവതരിപ്പിക്കും

എ മാർ അയോഗ്യരാക്കപ്പെട്ടതിനെ തുടർന്ന് രാജി വച്ചു ഒഴിവിലേക്കാണ് നിർണ്ണായകമായ ഉപതിരഞ്ഞെടുപ്പ് നടന്നത്

ഭരണ കക്ഷിയായ ബി ജെ

ബിജെപി സ്ഥാനാർത്ഥികളുടെ പ്രചാരാണാർത്ഥം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹസാരിബാഗ് ജില്ലയിലെ ബറാഹിയിലും ബൊക്കാറോയിലും രണ്ട് പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി ഹസാരിബാഗിലെ ബക്കാഗോവനിലും റാഞ്ചിയിലും തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പ്രസംഗിക്കും

യിൽ ഉന്നാവോയിൽ പീഢനത്തിനിരയായ പെൺകുട്ടിയെ തീ വെച്ചു കൊന്ന സംഭവത്തിൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ഉൾപ്പെടെ ഏഴ് പോലീസ് ഓഫീസർമാരെ ഗവൺമെന്റ് സസ്പെൻഡ് ചെയ്തു

വ്യാഴാഴ്ച കോടതിയിൽ തെളിവെടുക്കാൻ പോകവേയാണ് അക്രമികൾ പെൺകുട്ടിയെ തടഞ്ഞു വെച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയത്

പെൺകുട്ടിയുടെ കുടുംബത്തിന് യു

കേസ് അതിവേഗ കോടതി വിചാരണ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യ നാഥ് അറിയിച്ചു

സമത്വത്തിനായുള്ളി ശ്രമ്ങ്ങളിൽ രാഷ്ട്രത്തെ നയിക്കണമെന്നും ഉപരാഷ്ട്രപതി പ്രമഞ്ഞു

പൂനൈയിൽ ഡി ജി പി മാരുടെയും ഐ ജി പി മാരുടെയും മൂന്ന് ദിവസത്തെ അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ സമാപന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും ആത്മവിശ്വാസം വളർത്തുന്ന വിധം പോലീസിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്ത് ശാന്തിയും സമാധാനവും നിലനിർത്തുന്നതിൽ പോലീസ് നടത്തുന്ന സേവനങ്ങൾ ശ്ലാഘനീയമാണ്

സംസ്ഥാനങ്ങളിലെ വികസന പരിപാടികൾ നടപ്പാക്കുന്നതിന് അനുകൂല സാഹചര്യം സൃഷ്ടിക്കാൻ പ്രത്യേക പ്രയത്നം നടത്തണമെന്ന് ഡി

മറ്റൊരു നമ്പർ കൂടി പറയാം

രോഗശമനത്തിനായി പ്രാർത്ഥിച്ച എല്ലാവർക്കും അവർ ട്വിറ്ററിലൂടെ നന്ദി അറിയിച്ചു

മറ്റ് ബാറ്റ്സ്മാർക്ക് കാര്യമായി തിളങ്ങാനാവാതെ പോയത് ഇന്ത്യയുടെ സ്കോറിങ്ങിന്റെ വേഗത കുറച്ചു

ഓരോ മത്സരങ്ങൾ വിജയിച്ച് ഇരു ടീമുകളും മത്സരത്തിൽ ഇപ്പോൾ തുല്യത പാലിച്ചിരിക്കുകയാണ് മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം ബുധനാഴ്ച മുംബൈയിൽ നടക്കും

ആകെയുള്ള പത്ത് വിഭാഗങ്ങളിൽ ആറ് എണ്ണത്തിലും സ്വർണ്ണം നേടിയാണ് റെയിൽവെ ചാമ്പ്യൻമാരായത്

ഉത്തർ പ്രദേശിൽ ബീഫ് കൈവശം വച്ചതായി ആരോപിച്ചു നടന്ന ആൾക്കൂട്ട കൊലപാതകമാണ് ചിത്രത്തിന്റെ പ്രമേയം അവർ മദേർസ് മൈ ഡിയർ ഫ്രണ്ട് എന്നീ മത്സര ചിത്രങ്ങളുടെ ആദ്യ പ്രദർശനവും ദി പ്രോജക്ഷനിസ്റ്റ് ദ ഹ്യൂമറിസ്റ്റ് വൃത്താകൃതിയിലുള്ള ചതുരം എന്നീ മത്സരചിത്രങ്ങളുടെ പുനഃപ്രദർശനവും ഇന്നുണ്ടാകും